തീവ്രവ്യാപന സ്വഭാവത്തോടുകൂടിയ വൈറസാണ് ഈ ഘട്ടത്തിൽ കാണുന്നതെന്നും മുഖ്യമന്ത്രി

ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും മരണവും വർധിച്ചു

വാർത്തകൾ വിശദമായി കോവിഡ് രണ്ടാം തരംഗത്തിൽ കൂടുതൽ വലിയ വെല്ലുവിളികളാണ് നാം നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തീവ്രവ്യാപന സ്വഭാവത്തോടുകൂടിയ വൈറസാണ് ഈ ഘട്ടത്തിൽ കാണുന്നതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് ദര കോവിഡിന്റെ തീവ്ര വ്യാപനം തടയുക രോഗബാധിതർക്ക് നല്ല ചികിത്സാ സൌകര്യം ഉറപ്പാക്കുക എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നതാണ് ഗവണ്മെന്റിന്റെ നയവും അടിയന്തര കടമയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആശ്വസിക്കാവുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ലെന്ന് പിണറായി വ്യക്തമാക്കി

നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കൃത്യമായ വിവരങ്ങൾ നൽകുന്നത് തുടരും അടിയന്തര ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് പോലീസ് പാസിന് അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനം പ്രവർത്തനക്ഷമമായിട്ടുണ്ട്

അവശ്യ സർവ്വീസ് വിഭാഗത്തിലെ തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവർക്കും വീട്ടുജോലിക്കാർ തൊഴിലാളികൾ എന്നിവർക്കുമാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്

അടുത്ത ബന്ധുവിന്റെ മരണം വിവാഹം വളരെ അടുത്ത ബന്ധുവായ രോഗിയെ സന്ദർശിക്കൽ ഒരു രോഗിയെ ചികിൽസാ ആവശ്യത്തിനായി മറ്റൊരിടത്തേയ്ക്ക് കൊണ്ടു പോകൽ മുതലായ കാര്യങ്ങൾക്ക് മാത്രമേ ജില്ല വിട്ട് യാത്ര അനുവദിക്കൂ വാക്സിനേഷന് പോകുന്നവർക്കും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ തൊട്ടടുത്തെ കടകളിൽ പോകുന്നവർക്കും സത്യവാങ്മൂലം മതി കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് മരുന്നും മറ്റ് അവശ്യ ഉപകരണങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുമതി ലഭിച്ചിട്ടുണ്ട്

വിശദാംശങ്ങളുമായി ജഷിത കുമാരി രുര ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും മരണവും വർധിച്ചു

എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് ഇന്നലെ രോഗം ബാധിച്ചത്

ന്യൂസ് ഡസ്ക് ആകാശവാണി രും മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്നു

സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് ചെക്ക്പോസ്റ്റിലും കോഴിക്കോട് തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തികളിലും പൊലീസ് പരിശോധന കർശനമാക്കി

രും കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ചികിത്സയ്ക്കായി ജില്ലാ ഭരണകൂടം കൂടുതൽ സൌകര്യമൊരുക്കി നിലവിലെ സാഹചര്യം നേരിടാനുള്ള ചികിത്സ സൌകര്യങ്ങൾ ദിവസേന വിലയിരുത്തി മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്

പൊലീസ് സ്റ്റേഷൻ പരിധി നിശ്ചയിച്ചാണ് ഇവർക്ക് ചുമതല നൽകിയിരിക്കുന്നത്

രുര ലോക്ക്ഡൌൺ സമയത്ത് ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിന് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോൾ സെന്റർ പ്രവർത്തനം തുടങ്ങി അത്യാവശ്യ മരുന്നുകൾ മത്സ്യവും മാംസവും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ കൊവിഡ് രോഗികൾക്ക് ആവശ്യമായ സഹായം എന്നിവ ലഭ്യമാക്കുന്ന സംവിധാനമാണ് കോൾ സെന്റർ വഴി ഒരുക്കിയിരിക്കുന്നത് രുഭ ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലാ അതിർത്തിയിൽ പൊലീസ് പരിശോധന കർശനമാക്കി അച്ചൻകവല നെല്ലാപ്പാറ എന്നിവിടങ്ങളിലൂടെ വ്യക്തമായ രേഖകളില്ലാത്ത വാഹനങ്ങളെ കടത്തി വിടുന്നില്ല എറണാകുളം കോട്ടയം ജില്ലകളിലെ സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് പരിശോധന നടത്തുന്നത് രുര കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ കോവിഡ് ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എൻ കെ പ്രേമചന്ദ്രൻ എം

കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ആശുപത്രികൾക്ക് വാഹനങ്ങളും ഉപകരണങ്ങളും നൽകുന്നതിനായി ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് എം പി ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടു രംഭ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ബേപ്പൂർ വെള്ളയിൽ ഹാർബറുകൾ നാളെ രാവിലെ മുതൽ അടച്ചിടും

ലോക്ഡൌൺ കാലയളവിലും കെ എസ് ഇ ബിയുടെ ആസ്ഥാനമായ വൈദ്യുതി ഭവനിലെ കാൾ സെന്റർ മുഴുവൻ സമയവും പ്രവർത്തിക്കും രുമ മാതൃഭൂമി ന്യൂസ് സീനിയർ ചീഫ് റിപ്പോർട്ടർ വിപിൻ ചന്ദ് അന്തരിച്ചു

കോവിഡാനന്തരം ന്യൂമോണിയ ബാധിത അദ്ദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു

ശാസ്ത്രീയമായും യുക്തിസഹമായും നീതിപൂർവ്വമായും മെഡിക്കൽ ഓക്സിജൻ വിതരണം ചെയ്യുന്നുവെന്ന് ഉറപ്പു വരുത്താനാണ് സംഘം രൂപീകരിച്ചത്

രാജ്യത്തെ വിദഗ്ധരടങ്ങിയ സംഘത്തെ ടാസ്ക് ഫോഴ്സിൽ ഉൾപ്പെടുത്തുമെന്ന് ജസ്റ്റിസുമാരായ ഡി വൈ ചന്ദ്രചൂഡ് എം

യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിളിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമ്മേളനത്തിൽ പങ്കെടുത്തു വിദേശ നയം സുരക്ഷ കോവിഡ് കാലാവസ്ഥയും പരിസ്ഥിതിയും വ്യാപാരം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ നേതാക്കൾ ആശയവിനിമയം നടത്തി കോവിഡ് മഹാമാരി നേരിടുന്നതിനും സാമ്പത്തിക മേഖലയുടെ തിരിച്ചുവരവിനും കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനും അടുത്ത സഹകരണം രൂപപ്പെടുത്തുന്നതും നേതാക്കൾ ചർച്ച ചെയ്തു കോവിഡിന്റെ രണ്ടാം തരംഗം നേരിടുന്നതിന് യൂറോപ്യൻ യൂണിയനും അംഗ രാജ്യങ്ങളും വളരെ വേഗത്തിൽ സഹായം ലഭ്യമാക്കിയതിനെ ഇന്ത്യ അനുമോദിച്ചു രംഭ അസമിൽ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം എൽ എ മാർ ഇന്ന് ദിസ്പൂരിൽ യോഗം ചേരും കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ബിജെപി ജനറൽ സെക്രട്ടറി അരുൺ സിങും കേന്ദ്ര നിരീക്ഷകരായി യോഗത്തിൽ പങ്കെടുക്കും അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളും മുതിർന്ന മന്ത്രി ഹിമാന്ദ ബിശ്വ ശർമയും ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രംഗത്തുവന്നിരിക്കുന്നത് ന്യൂഡൽഹിയിൽ ഇന്നലെ ചേർന്ന ബിജെപി കേന്ദ്രനേതാക്കളുടെ യോഗത്തിൽ ഇരുനേതാക്കളും പങ്കെടുത്തിരുന്നു പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം രുഭ ഇന്ന് ലോക മാതൃദിനം

മാതൃത്വത്തെയും മാതാവിനെയും ആദരിക്കുക അവർക്കു വേണ്ടി അല്പസമയം മാറ്റിവെയ്ക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം

രുര വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത കാഴ്ച പരിമിതർ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി കോവിഡ് വാക്സിൻ നൽകണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വാക്സിൻ കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് നൽകിയ മുൻഗണന കാഴ്ച പരിമിതർക്കും ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും സംഘടന ഉന്നയിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ അമരമ്പലം കരുളായി പഞ്ചായത്തുകളിൽ കലക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നിലവിലുള്ളതിനാൽ ആരാധനാലയങ്ങളിൽ പൊതുജനങ്ങൾ ഒത്തുചേരുന്നത് പൊലീസ് വിലക്കിയിരുന്നു ഇതിൽ പ്രകോപിതനായ ഇയാൾ പൊലീസിന്റെ നടപടിയിൽ പ്രതിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സാഹചര്യത്തിലാണ് നടപടി